ജീവിക്കേണ്ട സാഹചര്യമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ കിസാൻ മഹാസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു

വ്യാജപ്രചരണങ്ങൾക്ക് ക്ർഷികർ ഇരയാകരുതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നര്ട്രിന്ദ്രിസിംഗ് തോമർ

യുണൈറ്റഡും ജംഷഡ്പൂർ എഫ് സിയും നേർക്കുനേർ

മധ്യപ്രദേശിലെ കിസാൻ മഹാസമ്മേളനത്തെ വീഡിയോ കോൺഫെറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

പുതിയ നിയമത്തിൽ ഉത്പന്നങ്ങൾ എവിടെ വിൽക്കുണം എന്നുള്ളത് കൃഷിക്കാരന് തന്നെ നിശ്ചയിക്കാൻ കഴിയുന്നു സ്കൂവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്

പ്രകൃതിദുരന്തമുണ്ടായാൽ പോലും കർഷകന് മുഴുവൻ പണവും ലഭിക്കുമെന്നും കൃഷിയിൽ ലാഭം വർദ്ധിക്കുകയാണെങ്കിൽ വർദ്ധിച്ച ലാഭത്തിൽ കർഷകന്റെ പങ്ക് ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

ഈ കാലയളവിൽ ഇന്ത്യ കാർഷിക മേഖലയിൽ കൊണ്ടു വന്ന ആധുനിക സംവിധാനങ്ങൾ ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ്

രാജ്യത്തെ ഓരോ കർഷകർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് സൌകര്യം സർക്കാർ നൽകിയിട്ടുണ്ട് നിരവധി കർഷകർക്ക് വളരെ എളുപ്പത്തിൽ ധനസഹായം ലഭ്യമാക്കാൻ കിസാൻ ക്രെഡിറ്റ് കാർഡ് സഹായകരമായി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ മിക്ക സംഭരണശാലകളും സംസ്കരണ കേന്ദ്രങ്ങളും വലിയ നഗരങ്ങളോട് ചേർന്നാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് മൂലം അവയുടെ ഗുണഫലങ്ങൾ പൂർണ്ണതോതിൽ ഉപയോഗപ്പെടുത്താൻ രാജ്യത്തെ ഗ്രാമീണരായ കർഷകർക്ക് സാധിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഒരു ലക്ഷം കോടി രൂപയുടെ കാർഷിക അടിസ്ഥാന സൌകര്യ നിധിയ്ക്കാണ് സർക്കാർ രുപം നൽകിയിട്ടുള്ളത് കാർഷിക പരിഷ്കാരങ്ങളുടെ ഫലമായി കൃഷിഭൂമി കർഷകന് നഷ്ടപ്പെടുമെന്ന പ്രചരണം വ്യാജമാണെന്നും കാർഷിക വിള സംബന്ധിച്ച ഉടമ്പടി മാത്രമാണ് കർഷകരും വ്യാപാരികളും തമ്മിൽ ഉണ്ടാവുകയെന്നും അദ്ദേഹം ഉറപ്പുനൽകി

രാജ്യത്തെ കർഷകരെ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും രുദ്ദാപൂരിൽ കർഷക റാലിയെ അഭിസംബോധന ചെയ്തു സംസാരിക്കു്വ അദ്ദേഹം പറഞ്ഞു

തെരുഞ്ഞെടുപ്പിനോടനുബന്ധിച്ച പരിപാടികളിൽ പങ്കെടുത്തവരും അപ്പ്തുമായി ഇടപഴകിയവരും വരുന്ന ഒരാഴ്ചക്കാലം ശ്രദ്ധിക്കേണ്ടതാണ്

ബ്രസീൽ റഷ്യ ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ രാജൃങ്ങളിലും കോവിഡ് വൃാപനം രൂക്ഷമായി തുടരുകയാണ്

പ്രതിരോധ സാങ്കേതികവിദ്യകൾ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ട് ഡിആർഡിഒ തദ്ദേശീയ വൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചതായും പേറ്റന്റുകളും സാങ്കേതിക വിദൃകളും കൈമാറുന്നതിലൂടെ വൃവസായ സ്വയംപര്യാപ്തത നേടിയതായും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു

വ്യോമസേന ട്രെയിനികളും അവരുടെ കുടുംബങ്ങളൂമായും സംവദിക്കുന്ന രാജ്യരക്ഷാമന്ത്രി ഡിആർഡിഒ കേന്ദ്രങ്ങളും സന്ദർശിക്കും

ഇന്തൃയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്

ഇന്ത്യയ്ക്കായി രവിചന്ദ്ര അശ്ചിൻ നാലു പ്പിക്കറ്റും ഉമേഷ് യാദവ് മൂന്ന് വിക്കറ്റും നേടി

ഈ സീസണിൽ തോൽവിയൊന്നും വഴങ്ങാതെയാണ് നോർത്ത് ഇൌസ്റ്റ് ഏഴാം മത്സരത്തിനിറങ്ങുന്നത്

അതേസമയം ഏഴു പോയിന്റുമായി ജംഷഡ്പൂർ പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ്